ഈ ലക്ഷ്യമാണ് ആഗ്ര മെട്രോ പദ്ധതിയിൽ പ്രതിഫലിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആഗ്ര മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആക്നേന്ദ്ര മന്ത്രി ഹർദീപ് സിംഗ് പുരി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ്യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ വോയിസ് മെട്രോ പദ്ധതികളുടെ സാമ്പത്തിക പ്രാധാന്യം അടിവരയിട്ട് പറഞ്ഞ പ്രധാനമന്ത്രി ഈ പൂരാതന നഗരത്തിന്റെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് മെട്രോ സഹായകമാകുമെന്നു വ്യക്തമാക്കി പ്രാദേശിക വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാനായി വോക്കൽ ഫോർ ലോക്കൽ ആശയത്തിന് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട് മെച്ചപ്പെട്ട വിനോദസഞ്ചാര മേഖലകളുടെ സൂചികയിൽ ഇന്ത്യ അറുപത്തിയഞ്ചാം സ്ഥാനത്തുനിന്ന് മുപ്പത്തിനാലാം സ്ഥാനത്തെത്തിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഡൽഹി മുതൽ മീററ്റ് വരെ ആദ്യത്തെ അതിവേഗ റെയിൽവേ സംവിധാനത്തിന്റെ നിർമ്മാണം നടന്നുവരുന്നതായും ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു

താജ്മഹൽ ആഗ്ര കോട്ടു സികന്ദ്ര എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി അഞ്ച് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എല്ലാവരും കോവിഡ് വാക്സിനായി കാത്തിരിക്കുകയാണ് വാക്സിൻ ലഭ്യമാകുന്നത് വരെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

പ്രതിരോധ മരുന്ന് നിരവധി ജീവൻ രക്ഷിക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദാർ പൂനാവാല പ്രത്യാശ പ്രകടിപ്പിച്ചു വാക്സിൻ നിർമാണത്തിനു പിന്തുണ നൽകിയ കേന്ദ്രസർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കും അദ്ദേഹം നന്ദി പറഞ്ഞു

ബുധനാഴ്ച വരെയാണ് സമ്മേളനം

മധ്യപ്രദേശിലെ ബുന്ദേൽഖണ്ഡ് മേഖലയിലെ ഓർച്ച അമ്പലങ്ങൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമാണ് പതിനാറാം നൂറ്റാണ്ടിൽ ബുണ്ടെല രാജവംശത്തിന്റെ തലസ്ഥാനം ആയിരുന്നു ഇവിടം രജപുത്ത് മുഗൾ ശൈലികളിൽ നിർമ്മിച്ചിട്ടുള്ള പ്രസിദ്ധമായ നിരവധി കൊട്ടാരങ്ങൾ ഇവിടെയുണ്ട് ഗർജർ പ്രതിഹാർ തോമർ ബാഘേൽ കച്ചുവ സ്കിന്ദ്യ രാജവംശങ്ങളുടെ തലസ്ഥാനമായിരുന്നു ഗ്വാളിയർ ചരിത്രം പേറുന്ന നിരവധി സ്മാരകങ്ങളും കോട്ടകളും കൊട്ടാരങ്ങളും ഇവിടെ സ്ഥിതിചെയ്യുന്നു

ഇവരിൽ രണ്ട് ഷ്പേർ പ്രഞ്ചാബിൽ നിന്നും മറ്റുള്ളവർ ജമ്മു കശ്മീരിൽ നിന്നുമാണ്ണെന്ന് ഡൽഹി പോലീസ് പ്രത്യേകവിഭാഗം മേധാവി പ്രമോദ് കുശ്വാഹ് മാധ്യമങ്ങളോട് പറഞ്ഞു ഖാലിസ്ഥാൻ കശ്മീരിലെ പ്രസ്ഥാനവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഐ എസ് ഐയുടെ ശ്രമമാണ് ഇന്നത്തെ സംഭവത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

കൃത്യമായ സാനിറ്റൈസർ ഉപയോഗം മുഖാവരണം ധരിക്കൽ തുടങ്ങിയ കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക കോവിഡ് രോഗികൾക്കായുള്ള പ്രത്യേക പോസ്റ്റൽ ബാലറ്റ് സംവിധാനം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ ആരംഭിച്ചിരുന്നു

കോവിഡ് ബാധയെത്തുടർന്ന് മുംബൈയിൽ ചികിത്സയിൽ കഴിയവേയാണ് മരണം

ഇന്നലെ ബഹ്റൈനിൽ നടന്ന മത്സരത്തിൽ മിക്ക് ഷൂമാക്കർ ഡാൻ ടിക്റ്റം തുടങ്ങിയ പ്രശസ്ത താരങ്ങളെ പിന്തള്ളിയാണ് ദാരുവാല ഒന്നാമതെത്തിയത്

കെ മോഹൻ ബഗാൻ മത്സരം ആരംഭിച്ചു ഗോവ തിലക് മൈതാനത്താണ് മത്സരം തുടർച്ചയായ നാലാം ജയം ലക്ഷ്യമിട്ടാണ് ബഗാൻ കളത്തിലിറങ്ങുന്നത് മൂന്നു കളിയിൽ രണ്ടു സമനിലയും ഒരു തോൽവിയുമാണ് ജംഷഡ്പൂരിന്റെ പട്ടികയിലുള്ളത്

ഇവിടെ വാക്സിൻ വിതരണം ആരംഭിക്കും തുടക്കത്തിൽ ആശുപത്രികളിലാകും നാളെ വാക്സിൻ കിട്ടുക

ആകാശവാണിയുടെ പട്ന ഓഫീസ് ഉദ്യോഗസ്ഥനായിരുന്നു അലഹബാദിൽ ആകാശവാണി ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു